എസ് എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റിക്ക് വിജയം

വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രണ്ടാമത് ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവൽ സമാപന ചടങ്ങിനെ രാവിലെ പത്തരയ്ക്ക് വിഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യും ദേശീയ ജേതാക്കളായ മൂന്നുപേർക്ക് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചടങ്ങിൽ സംസാരിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും ചെയ്യും

ഈ മാസം ഒന്നുമുതൽ അഞ്ചു വരെ ആയിരുന്നു സംസ്ഥാന പാർലമെന്റുകൾ

ദേദ സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് ദേശീയ യുവജന ദിനം ആഘോഷിക്കുന്നു വേദാന്തവും യോഗയും ഉൾപ്പെട്ട ഭാരതീയ ദർശനത്തെ സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് പരിചയപ്പെടുത്തി

ദേദ കേന്ദ്ര ആയുഷ് സഹമന്ത്രി ശ്രീപദ് യശോനായിക്കും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും സഹായിയും മരണമടഞ്ഞു

ഇന്നലെ വൈകീട്ട് ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോള ഹൊസകംബിയ്ക്കടുത്തായിരുന്നു വാഹനാപകടം മന്ത്രിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ടായിരുന്നു അപകടം ഭാര്യ വിജയ സഹായി ദീപക് ദുബെ എന്നിവരാണ് മരിച്ചത് യശോനായിക്കിന് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനോട് ആവശ്യപ്പെട്ടു ദേദ ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ വികസിപ്പിച്ച ഖാദി പ്രകൃതിക് പെയിന്റ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്ന് വിപണിയിലിറക്കും പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്തതും വിഷരഹിതവുമായ പെയിന്റ് ബാക്ടീരിയയെയും ഫംഗസിനെയും ചെറുക്കുന്നതുമാണ്

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധിതർ

കൊല്ലത്ത് ജില്ലാ കലക്ടർ വാക്സിൻ വിതരണത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചാരണ നടപടികൾ ഊർജ്ജിതമാക്കാൻ കലക്ടർ നിർദ്ദേശം നൽകി ദേദ ബീച്ചുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആളുകൾ കൂട്ടംകൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി കൊല്ലം ജില്ലാ കലക്ടർ അറിയിച്ചു

കനത്ത പിഴയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്യാൻ സെക്ടറൽ മജിസ്ട്രേറ്റുമാരോടും പൊലീസിനോടും ആവശ്യപ്പെട്ടു ദേദ ഇന്നലെ വരെ രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി അറിയിച്ചു ജനങ്ങൾക്ക് ആവശ്യമായ ബോധവത്കരണം നടത്താനും നിരീക്ഷണം തുടരാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രോഗം പക്ഷികളിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരാതിരിക്കാൻ കർശന ജാഗ്രതയും നിരീക്ഷണവും ആവശ്യമാണെന്നും മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു ദേദ ചരക്കുസേവന നികുതി നടപ്പാക്കിയതുമൂലം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം പരിഹരിക്കാൻ ധനമന്ത്രാലയം പതിനൊന്നാമത് പ്രതിവാര ഗഡുവായി ആറായിരംകോടി രൂപ കൈമാറി

മുട്ടത്തറയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാന മന്ദിരത്തിനും വിജിലൻസ് ആന്റ് ആന്റികറപ്ക്ഷൻ ബ്യൂറോ കെട്ടിടത്തിനും ഓൺലൈനിൽ തറക്കല്ലിട്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനും ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ദേദ ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ് തുടർച്ചയായ അഞ്ചാം തവണയും കേരളത്തിന് ലഭിച്ചതായി മന്ത്രി എം

വൈദ്യുതി ഉത്പാദനത്തിന് പുറമെ വൈദ്യുതി ലാഭിക്കുന്നതിന് നടത്തിവരുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് അവാർഡെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും കെ

എം മണി പറഞ്ഞു

സി കൊൽക്കത്ത എ ടി കെ മോഹൻബഗാനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു ജയത്തോടെ മുംബൈ ഒന്നാംസ്ഥാനത്ത് തുടരുന്നു ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളുരു എഫ്

എട്ടാമത്തെ ബോളിലായിരുന്നു ശ്രീശാന്തിന്റെ വിക്കറ്റ് നേട്ടം ദേദ സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ നാളെ തുറക്കും ഇന്നലെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം കൊച്ചിയിൽ ചേർന്ന ഫിലിം ചേംബർ യോഗമാണ് തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനിച്ചത് സെക്കന്റ് ഷോ ഒഴിവാക്കിയും പ്രവേശനം പകുതി സീറ്റുകളിലായി പരമിതപ്പെടുത്തിയുമായിരിക്കും സിനിമാ പ്രദർശനം

പകർച്ചവ്യാധികൾ അപകട സാധ്യതയും ആഘാത ലഘൂകരണവും എന്നതാണ് ഈ വർഷത്തെ മുഖ്യ വിഷയം ദേദ എറണാകുളം ജില്ലയിൽ രണ്ടാമത്തെ ഷിഗല്ല കേസ് സ്ഥിരീകരിച്ചു

ജില്ലയിൽ രണ്ട് ഷിഗല്ല കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തിശുചിത്വം പാലിക്കാനും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി ദേദ ശബരിമലയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പന്തളത്ത് നിന്ന് ആരംഭിക്കും മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങൾ പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നാണ് ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത് മകര സംക്രമ പൂജയിൽ തിരുവാഭരണങ്ങൾ അണിയിച്ചായിരിക്കും ദീപാരാധന ദേദ കൊല്ലം ചന്ദനത്തോപ്പിലെ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ഡിസൈൻ ബിരുദ കോഴ്സ് രാവിലെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും

ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനമാണിത്

ദ്ദേ കോട്ടയം വെച്ചൂരിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി ബാധിച്ചല്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു

നിലവിൽ നീണ്ടൂർ ഒഴികെ ജില്ലയിൽ ഒരിടത്തും പക്ഷിപ്പനി ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി ദേദ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ ജി

ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സർവേ പ്രവർത്തനങ്ങൾ ഇന്നാരംഭിക്കും ദ്ദേ നാവികസേനയുടെ നേതൃത്വത്തിൽ തീരസുരക്ഷാ പ്രതിരോധ യജ്ഞം സീ വിജിൽ രണ്ടാംപതിപ്പിന് ഇന്ന് തുടക്കമാകും

തീരസുരക്ഷാ സേനയും കസ്റ്റംസും ഉൾപ്പെടെ ഏജൻസികളും രണ്ട് ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും